ഇവിടങ്ങളിലെ ഇന്ത്യൻ പോസ്റ്റുകളിലേയ്ക്കും ജനവാസ മേഖലകളിലേയ്ക്കും പാക്കിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി നേരിട്ടു

നിയന്ത്രണ രേഖ പ്രദേശങ്ങളിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാ ബദ്ധമാണെന്ന് സൈന്യം വൃക്തമാക്കി ഇന്ത്യൻ സേന കൈക്കൊള്ളുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും സാധാരണക്കാർക്ക് അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ജനവാസ മേഖലകളിൽ നിന്നും മാറിയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളാണ് സേന ആക്രമിക്കുന്നതെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു

ഇന്ത്യൻ സേന ശക്തിയുക്തം തിരിച്ചടിച്ചു പാക് ഷെല്ലാക്രമണം തുടരുന്നതായാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമൂായ സൂചന

തർക്കത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും മധ്യസ്ഥ ചർച്ചകളുടെ ഫലം രാജ്യത്തെ രാഷ്ട്രീയപരമായി എങ്ങനെ ബാധിക്കുമെന്നും കോടതിക്ക് ബോധ്യമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു തർക്ക ഭൂമിയല്ല കേസിന് ആധാരം മറിച്ച് വിശ്വാസവും പൊതുവികാരവുമാണെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിലൂടെ ബന്ധം ഉൌഷ്മളമാക്കുന്നതിന്റെ സാധ്യത ആരായാൻ കോടതി കേസ്സിലെ വിവിധ കക്ഷികളോട് ആവശ്യപ്പെട്ടു

മുൻ ധനമന്ത്രി യശ്വന്ത് സിൻഹ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകനായ ശ്രീ അരുൺ ഷൂറി സാമൂഹ്യ പ്രവർത്തകനായ അഡ്വ പ്രശാന്ത് ഭൂഷൺ എന്നിവരും വിഷയത്തിൽ ഹർജികൾ സമർപ്പിച്ചിരുന്നു

നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി നടത്തിയ സർവ്വേ യിലേതാണ് ഈ കണക്കുകൾ

കേന്ദ്ര സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം ദിനാചരണത്തോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജനങ്ങളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും

ഉയർന്ന ഗുണ നിലവാരത്തിലുള്ള മരുന്നുകൾ ചുരുങ്ങിയ വിലയിൽ നൽകുകയാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ ലക്ഷ്യ മെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു

സി പ്രതിനിധികളുടെ യോഗം അംഗീകരിച്ചു

കർണ്ണാടക സന്ദർശന വേളയിൽ ബംഗളുരുവിൽ ഇ

ഐ സി ആശുപത്രിയും മെഡിക്കൽ കോളേജും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു ഹൂബ്ലിയിൽ കർണ്ണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കലബുർഗിയിൽ ആയുഷ്മാൻ ഭാരത് ഉപഭോക്താക്കളുമായി ശ്രീ

കർണ്ണാടകത്തിൽ കൃഷിക്കാരുടെ വായ്പ എഴുതിതള്ളുമെന്ന് കൃഷ്ട്പ്പുറ്ദാനം നൽകിയ നിലവിലെ കൂട്ടുകക്ഷി ഗവൺമെൻ്റ് വാഗ്ദാനം നിറവേറ്റിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദ്വ്യാജരേഖകൾ ചമച്ച് ഗവൺമെന്റ് നൽകുന്ന സഹായങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വൈകിട്ട് കാഞ്ചീപുരത്ത് ഒരു പൊതുജന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാ യിരുന്നു പ്രധാനമന്ത്രി

രണ്ട് ലക്ഷത്തിലധികം കൈത്തറികളുടെ നവീകരണത്തിന് കേന്ദ്രം സഹായി നൽകുന്നതായും ഇതിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എം

രാമചന്ദ്രന്റെ പേര് നൽകാൻ കേന്ദ്രഗവൺമെന്റ് തീരുമാനി ച്ചതായി ശ്രീ

രാജ്യത്തെ ഏറ്റവും വൃത്തിയുളള നഗ്ഗർമെന്ന ബഹുമതി മധ്യപ്രദേശിലെ ഇൻഡോർ നിലനിർത്തി വൃത്തിയുള്ള ചെറുപട്ടണമായി ന്യൂഡൽഹി മുൻസിപ്പൽ കൌൺസിൽ ഏരിയ തെരഞ്ഞെടുക്കപ്പെട്ടു ഗംഗാ തീരത്തെ മികച്ച നഗരമായി ഉത്തരാഖണ്ഡിലെ ഗൌച്ചർ മാറി

വിശദാംശങ്ങളുമായി കരോൾ

നഗരങ്ങളോ ഗ്രാമങ്ങളോ ഇപ്പോൾ അറിയപ്പെടുന്നത് ശുചിത്വത്തിന് അവർ നൽകുന്ന ഊന്നലിന്റെ പേരിലാണെന്നും ഇത് മികച്ച ഒരു മാറ്റമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു നാല് തവണത്തെ സർവ്വേകളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഇൻഡോറിനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു മറ്റ് നഗരങ്ങൾക്ക് ഇൻഡോർ ഒരു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലവത്താക്കാൻ ഓരോ പൌരന്റെയും പെരുമാറ്റത്തിന്റെ ഭാഗമായി ശുചിത്വ ബോധം മാറേണ്ടതുണ്ടെന്നും ശ്രീ

വൃക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നവർ പലപ്പോഴും പൊതു സാമൂഹിക ശുചിത്വത്തിൽ ഉപേക്ഷ പുലർത്തുകയാണ് പതിവ് ശുചീകരണ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനും ശുചിത്വത്തിന്റെ പ്രാധാ നൃത്തെപറ്റി അവബോധം സൃഷ്ട്ടിക്കാനും രാഷ്ട്രപതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവൃശ്യപ്പെട്ടു രാജ്യത്തെ നഗരങ്ങളിൽ ഇപ്പോൾ നടത്തിവരുന്ന് മാറ്റങ്ങൾ ആസൂത്രിത നഗരവല്കരണത്തിന്റെ ഏറ്റപ്പുകൾ മികച്ച മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഭവന്കാർത്യമന്ത്രി ഹർദ്ദീപ് സിംഗ് പുരി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആക്ടാൾവാണി

യാത്രാനുമതി പുതുക്കാതെ ഇനി മുതൽ മൂന്ന് മാസത്തിലേറെ അമേരിക്ക യിൽ തങ്ങാൻ പാക് മാധ്യമ പ്രവർത്തകർക്ക് കഴിയില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

ജലാലാബാദിലെ പ്രധാന വിമാനത്താവളത്തിനടു ത്തുള്ള കെട്ടിട നിർമ്മാണ കമ്പനിയിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത്